തുടർ നടപടികൾക്ക് മന്ത്രി എം എം മണിയെ ചുമതലപ്പെടുത്തി

ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ താമ സിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് മുന്നറിയിപ്പ്

ങ്ങ ൽ ഇടുക്കി ഡാം തുറക്കേണ്ടത് അനിവാര്യമെന്ന് മന്ത്രിസഭാ യോഗം വിലയിരുത്തി

അണക്കെട്ട് സന്ദർശിച്ച ശേഷം മന്ത്രി മാരായ എം എം മണിയും മാത്യൂ ടി തോമസും സ്ഥിതി യോഗ ത്തിൽ അവതരിപ്പിച്ചതിനെ തുടർന്നാണ് ഡാം തുറക്കേണ്ടി വരു മെന്ന തീരുമാനത്തിൽ മന്ത്രിസഭയെത്തിയത് ചെറുതോണി ഡാമിന്റെ ഷട്ടറുകൾ ഘട്ടംഘട്ടമായാണ് തുറ ക്കുകയെന്നും താമസംവിനാ ഇതുസംബന്ധിച്ച് തീരുമാനമെടു ക്കുമെന്നും മന്ത്രി മണി മന്ത്രിസഭാ യോഗത്തിനു ശേഷം തിരു വനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു അഞ്ച് ഷട്ടറുകളും ഒന്നിച്ച് തുറന്നാൽ വലിയ ദുരന്തമുണ്ടാ കുമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു എപ്പോഴാണ് ഡാം തുറക്കേണ്ടി വരിക അപ്പോൾ തന്നെ തുറക്കുമെന്നും മന്ത്രി അറിയിച്ചു ഇക്കാ രൃത്തിൽ മന്ത്രിമാർ രണ്ട് തട്ടിലാണെന്ന വാർത്ത അദ്ദേഹം നിഷേധിച്ചു വൈദ്യുതി വകുപ്പിന് വൃത്യസ്ത നിലപാടില്ലെന്നും മന്ത്രി പറഞ്ഞു തുറക്കുന്നതിന് മുമ്പ് കൂടുതൽ മുന്നറിയിപ്പ് നൽകുമെന്നും മണി വൃക്തമാക്കി

ഡാമിലേക്ക് നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്

ഡാമിന്റെ നാല് ഷട്ടറു കളാണ് മൂന്ന് സെന്റിമീറ്റർ വീതം ഉയർത്തിയത്

കൽപാ ത്തിപ്പുഴ പറളിപ്പുഴ ഭാരതപ്പുഴ എന്നിവയുടെ തീരങ്ങളിൽ താമ സിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു പുഴയിൽ ഇറങ്ങുകയോ കുളിക്കുകയോ ചെയ്യരുതെന്ന് അധി കൃതർ നിർദേശിച്ചിട്ടുണ്ട് ഇടമലയാർ കക്കി അണക്കെട്ടുകളിൽ ഓറഞ്ച് അലർട്ട് പുറ പ്പെടുവിച്ചു

കക്കി ഡാമിൽ ഒരു മീറ്റർ കൂടി ജലനിരപ്പ് ഉയർന്നാൽ തുറന്നുവിടും

വായ്പകളുടെ ബാങ്ക് പലിശ ഉയർന്നു കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ നയപ്രഖ്യാപന ത്തിന് പ്രധാന്യും ഏറെയാണ് വിലക്കയറ്റം കാര്യമായി ഇല്ലാ ത്തതു കൊണ്ടും കാലവർഷം തുടരുന്നതു കൊണ്ടും പലിശ നിരക്കിൽ കാര്യമായ മാറ്റം ഉണ്ടാവില്ലെന്നാണ് വിലയിരുത്തൽ

ഉത്തര കർണാടക പ്രത്യേക രാജ്യ പോരാട്ട സമിതി ഉത്തര കർണാടക വികാസ വേദികെ തുടങ്ങിയ സംഘടനകളാണ് ബന്ദിന് ആഹ്വാനം നൽകിയത് വടക്കൻ കർണാടകയോട് മാറിമാറി വരുന്ന ഗവൺമെന്റുകൾ അവഗണന പുലർത്തുന്നുവെന്നാരോ പിച്ചാണ് ബന്ദ്

എന്നാൽ കർണാടകം എക്കാലവും അഖണ്ഡ മായിത്തന്നെ നിലനിർത്തുമെന്ന് മുഖ്യമന്ത്രി എച്ച് ഡി കുമാര സ്വാമി ബംഗളൂരുവിൽ പറഞ്ഞു

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡണ്ട് ഷി ജിൻ പിങും നടത്തിയ ആദ്യ കൂടിക്കാഴ്ച വൻ വിജയമായിരുന്നുവെന്ന് ലോക്സഭയിൽ ചോദ്യോ ത്തരവേള യിൽ അവർ പറഞ്ഞു തൽസ്ഥിതിയിൽ ഒരിഞ്ചു പോലും മാറ്റം വരുത്തിയിട്ടില്ലെന്നും സുഷമാ സ്വരാജ് അറിയിച്ചു തമിഴ്നാട് മുൻമുഖ്യമന്ത്രിയും ഡി എം കെ നേതാവുമായ കരുണാനിധിയുടെ ആരോഗൃനില തൃപ്തികരമെന്ന് ആശുപത്രി റിപ്പോർട്ടുകൾ പറയുന്നു മരുന്നുകളോട് പ്രതികരിക്കുന്നതാ യാണ് ചെന്നൈ കാവേരി ആശുപത്രിയിലെ ഡോക്ടർമാർ നല്കുന്ന വിവരം അതേസമയം ആശുപത്രി പരിസരത്ത് പാർട്ടി പ്രവർത്തരും ആരാധകരും തമ്പടിച്ചിരിക്കുകയാണ് ശബരിമല ക്ഷേത്രത്തിലെ സ്ത്രീ പ്രവേശനത്തെ അമിക്കസ് ക്യൂറി രാജു രാമമൂർത്തി സൂപ്രീകോടതിയിൽ എതിർത്തു ശബ രിമലയിലെ ഇപ്പോഴത്തെ ആചാരങ്ങൾ തുടരണമെന്നും അതിൽ കോടതി ഇടപെടരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസിൽ ഭരണഘടനാ ബെഞ്ചിന് മുന്നിൽ വാദം തുടരുകയാണ് എസ് ഹരീഷിന്റെ മീശ എന്ന നോവൽ പ്രസിദ്ധീകരിക്കു ന്നത് വിലക്കണമെന്നാവശ്യപ്പെട്ട് സൂപ്രീംകോട്ടതിയിൽ പൊതു താത്പര്യ ഹർജി നൽകി

ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കും മെഡിക്കൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നീറ്റ് കൌൺസി ലിങ്ങുമായി മുന്നോട്ട് പോകാൻ സുപ്രീംകോടതി കേന്ദ്രഗ വൺമെന്റിന് അനുമതി നൽകി കൌൺസിലിംഗിനെതിരായ മുംബൈ ഹൈക്കോടതി വിധി സുപ്രീംകോടതി സ്റ്റേ ചെയ്തു പാലക്കാട് കോച്ച് ഫാക്ടറിയോട് കേന്ദ്ര ഗവൺമെന്റ് കാണി ക്കുന്ന അവഗണനയ്ക്കെതിരെ കേരളത്തിലെ എൽ ഡി എഫ് എംപിമാർ പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിച്ചു യു ഡി എഫ് എം പിമാർ പ്രതിഷേധത്തിൽ നിന്ന് വിട്ടു നിന്നുവെന്ന് എം ബി രാജേഷ് എം പി കുറ്റപ്പെടുത്തി പാലക്കാട് കോച്ച് ഫാക്ടറി നേമം കോച്ച് യാർഡ് വിഷയ ങ്ങൾ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ലോക്സഭയിൽ സിപിഐ എമ്മിലെ എ സമ്പത്ത് അടിയന്തരപ്രമേയത്തിന് നോട്ടീസ് നൽകി അസമിലെ പൌരത്വ പ്രശ്ന വിഷയത്തിലും പ്രതിപക്ഷം അടി യന്തരപ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് കോൺഗ്രസിലെ ആദിർ രഞ്ജനാണ് നോട്ടീസ് നൽകിയത് കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയോട് കേന്ദ്ര ഗവൺമെന്റ് പുലർത്തുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ ഇന്ന് പാലക്കാട്ട് മനുഷ്യച്ചങ്ങല തീർക്കും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 ഉച്ചയ്ക്ക് രണ്ടുമണി മുതൽ പാലക്കാട് നഗര ത്തിൽ ഗതാഗതനിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്

ആധാർ നമ്പർ പരസ്യപ്പെടുത്തുന്നത് നിയമ വിരുദ്ധമാണെന്നും മറ്റൊരാളുടെ ആധാർ നമ്പർ ഉപയോഗിക്കുന്നത് ആൾമാറാട്ടമാ ണെന്നും അതോറിറ്റി ന്യൂഡൽഹിയിൽ അറിയിച്ചു

ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനക്കാരായ ഇന്ത്യയും ഏകദിന റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനക്കാരായ ഇംഗ്ലണ്ടും മത്സരത്തിനിറങ്ങുമ്പോൾ ക്രിക്കറ്റ് പ്രേമികൾ ആവേശത്തോടെയാണ് കാത്തിരിക്കുന്നത്

സ്പെയിനിന്റെ പാബ്ലോ അബിയാനെയാണ് ശ്രീകാന്ത് തോൽപ്പിച്ചത്

അതിനിടെ പ്രീകാർട്ടർ ലക്ഷ്യ മിട്ട് മലയാളിതാരം എച്ച് എസ് പ്രണോയ് ഇന്ന് ഇറങ്ങും

ആദ്യഘട്ടമെന്ന നില യിൽ ഉത്തരമേഖലയിലെ കാസർക്കോട് കണ്ണൂർ വയനാട് മലപ്പുറം ജില്ലകളിലാണ് ഇത് പ്രാവർത്തികമാകുക

സ്ത്രീകളിലെയും കൂട്ടികളിലെയും പോഷകക്കുറവ് പരിഹരിക്കാൻ ദേശീയ പോഷകാഹാരമിഷന്റെ ഭാഗമായി സംസ്ഥാന് വനിതാ ശിശു വികസന വകുപ്പ് ആവിഷ്കരിച്ചതാണ് സമ്പുഷ്ട കേരളം

ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി ആവിഷ്ക്കരിച്ച ഗരിമ പദ്ധതി കോഴിക്കോട് ജില്ലയിൽ ശക്തമാക്കാൻ തീരുമാനി ച്ചു കലക്ടർ യു

ഇവരുടെ ക്ഷേമ ത്തിനും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ജില്ലാഭര ണകൂടത്തിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയതാണ് ഗരിമ പദ്ധതി ഇതര സംസ്ഥാന തൊഴിലാളികൾ പ്രതികളാകുന്ന കുറ്റകൃ തൃങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന സാഹചരൃത്തിൽ അവ രുടെ രജിസ്ട്രേഷൻ നടപടികൾ ഊർജിതമാക്കാനും കലക്ടർ നിർദ്ദേശിച്ചു നിയമാനുസൃതമല്ലാത്ത ഒരു തരം മത്സൃബന്ധന രീതിയും അനുവർത്തിക്കരുതെന്ന് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ എം മറിയം ഹസീന ബേപ്പൂരിൽ ആവശ്യപ്പെട്ടു

ലൈസൻസ് ഉൾപ്പെടെ രേഖ കളില്ലാത്ത ബോട്ടുകളും മറ്റ് യാനങ്ങളും കടലിലിറക്കുന്നതും കുറ്റകരമാണെന്ന് ഫിഷറീസ് ഡപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രിൻവലിച്ചതോടെ കൊല്ലം ശക്തിക്കുളങ്ങരയിൽ നിന്ന് കടലിലിറക്കിയ ബോട്ടുകൾ പതിനൊന്ന് മണിയോടെ ഹാർബറിൽ തിരിച്ചെത്തി തുടങ്ങി ചെമ്മീൻ കാരി ഉൾപ്പെടെ ഭേദപ്പെട്ട ചരക്ക് ലഭിച്ചതിന്റെ ആഹ്താ ദത്തിലാണ് യന്ത്രവൽകൃത മത്സ്യബന്ധന മേഖലയെ ആശ്ര യിച്ചു കഴിയുന്നവർ കേന്ദ്ര ശുചിത്വ കുടിവെള്ള മന്ത്രാലയത്തിന്റെ സ്വച്ഛ് സർവ്വേ ക്ഷൻ ഗ്രാമീൺ സർവേക്ക് കണ്ണൂർ ജില്ലയിൽ തുടക്കമായി രാജ്യ ത്തെ എല്ലാ ജില്ലകളെയും ഗ്രാമപഞ്ചായത്തുകളിലെ വിവിധ ശു ചിത്വ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ റാങ്ക് നൽകുന്ന പദ്ധതി യാണ് സച്ഛ് സർപ്പേക്ഷൻ ഗ്രാമീൺ

സ്കൂളുകൾ അങ്കണവാടികൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ചന്തകൾ പഞ്ചായത്തുകൾ തുടങ്ങിയ പൊ തുയിടങ്ങളിലെ ശുചിത്വം വൃത്തിയുടെ കാര്യത്തിൽ പൊതുജന ങ്ങളുടെ കാഴ്ചപ്പാട് സ്വച്ഛ് ഭാരത് മിഷൻ പദ്ധതി മെച്ചപ്പെടു ത്തുന്നതിനായുള്ള നിർദ്ദേശങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി യാണ് സർവ്വെ സർവ്വെയുടെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനവും ശിൽപ്പശാലയും ജില്ലാ പഞ്ചായത്ത് ആരോഗൃ വിദ്യാഭ്യാസ സ് റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ജയബാലൻ നിർവഹിച്ചു ഇടുക്കി മുണ്ടൻമുടി കമ്പകക്കാനകത്ത് ഒരു കുടുംബത്തിലെ നാലു പേരെ കാണാതായി

വീടിന് അകത്ത് നിറയെ രക്തക്കറയും പുറത്ത് വലിയ കുഴി മണ്ണിട്ട് മൂടിയ നിലയിലും കണ്ടെത്തിയ സാഹചര്യത്തിൽ കാളിയാർ പൊലീസ് അന്വേ ഷണം ഊർജ്ജിതമാക്കി നാല് ദിവസമായി ഇവരെ കാണാനി ല്ലെന്ന് അയൽവാസികൾ അറിയിച്ചു വടക്കൻ പറവൂരിൽ മീൻ പിടിക്കാൻ പോയ യുവാവ് ചീന വലക്കെട്ടിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചു